ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് തിരി തെളിയും കേരള ബാങ്ക് പ്രഖ്യാപനം ഉച്ചകഴിഞ്ഞ തിരുവനന്തപുരത്ത്

കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് തിരുവനന്തപുരത്ത് വൈകിട്ട് തുടക്കമാകും

നടി ശാരദയാണ് ചടങ്ങിലെ വിശിഷ്ടാതിഥി മന്ത്രിമാരായ കടകംപള്ളി സുരേ ന്ദ്രൻ എ

ബാലൻ തുടങ്ങിയവർ പങ്കെടുക്കും

തുർക്കി ഭാഷയിലെ പാസ്ഡ് ബ്രൈ സെൻസർ ആണ് ഉദ്ഘാടനചിത്രം

മൂന്നാം ലോക രാജ്യങ്ങളിലെ സിനിമകൾക്കാണ് മേളയിൽ പ്രാധാന്യം നൽകുന്നത് അധിനിവേശത്തിനെതിരെ സിനിമ സമരായുധമാക്കിയ സോളാ നസിന്റെ ഡോക്യുമെന്ററി ഉൾപ്പെടെ അഞ്ചു ചിത്രങ്ങളും പ്രദർശിപ്പിക്കും കേരള ബാങ്ക് പ്രഖ്യാപനം ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്നിന് തിരുവന ന്തപുരത്ത് നടത്തും നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണ റായി വിജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും

സഹകരണ മേഖലയെ തകർക്കുന്ന നടപടി യാണ് കേരള ബാങ്ക് രൂപീകരണമെന്ന് ആരോപിച്ച് യു ഡി എഫ് ചടങ്ങ് ബഹിഷ്കരിക്കും

വിഷയം ചർച്ച ചെയ്യാൻ ജി എസ് ടി കൌൺസിൽയോഗം ഉടൻ വിളിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടതായും മന്ത്രി അറിയിച്ചു ് ് മയക്കുമരുന്ന് കേസുകളിൽ കടുത്തു ശിക്ഷ ഉറപ്പാക്കും വിധം എൻ ഡി പി എസ് നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ അറിയിച്ചു നാളത്തെ കേരളം ലഹരി വിമുക്ത നവകേരളം കർമ്മ പദ്ധതിയുടെ കണ്ണൂർ ജില്ലാതല പരിപാടി തലശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മയക്കുമരുന്നുകൾ ഉൾപ്പെടെ ലഹരി വസ്തുക്കളുടെ ഉപേയാഗം സൃഷ്ടിക്കുന്ന മാരക വിപത്ത് തടയാൻ സമൂഹമാകെ ഒന്നിച്ചു നിൽക്കേ ണ്ടതുണ്ട് എക്സൈസ് വകുപ്പും പൊലീസും ശക്തമായ നടപടികൾ എടുക്കുന്നുണ്ട് പുതുതലമുറയെയാണ് ലഹരി മാഫിയ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു

രണ്ടു പേപ്പറും അന്നു തന്നെ നടത്തും ഒ ടി പി വഴി സ്ഥിരീകരണം നൽകുന്ന ഉദ്യോഗാർ ത്ഥികൾക്ക് മാത്രമായിരിക്കും പരീക്ഷ എഴുതാൻ അവസരം

സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ചികിത്സക്കായി പോകുന്ന സാഹചര്യത്തിൽ ആക്ടിംഗ് സെക്രട്ടറിയെ നിയോഗിക്കുന്ന കാര്യം യോഗത്തിൽ ചർച്ചയായേക്കും എംവി ഗോവിന്ദന് താത്കാലിക ചുമതല നൽകിയേ ക്കുമെന്ന് സൂചനയുണ്ട്

കൂടുതൽ സൌരോർജ്ജ പദ്ധതികൾ സംസ്ഥാനത്ത് ആവിഷ്കരിക്കും ഹൈറേഞ്ച് ഡെയറി സഹകരണ സംഘം മുതുവാൻകുടിയിൽ സ്ഥാപിച്ച സോളാർ പവർ പ്ലാന്റ് ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി

ഇടുക്കി ജില്ലാ ക്ഷീര വികസ്ന സംഗമത്തിന്റെ ഭാഗ മായ പൊതുസമ്മേളനം പണിക്കൻകുടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായി രുന്നു മന്ത്രി വയനാട് എം പി രാഹുൽഗാന്ധി ഇന്നും നാളെയും ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും മീനങ്ങാടിയിൽ രാവിലെ വയനാട് മുൻ എം പി എം

ഷാനവാസ് അനുസ്മരണ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും സർവജന സ്കൂളിൽ പാമ്പുകടിയേറ്റ് മരിച്ച വിദ്യാർത്ഥിനി ഷഹ്ല ഷെറിന്റെ വീടും തുടർന്ന് സർവജന സ്കൂളും അദ്ദേഹം സന്ദർശി ക്കും ഉച്ചകഴിഞ്ഞ് വാകേരി ഹൈസ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിട ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യും വൈത്തിരി ഗവൺമെന്റ് ആശുപത്രിയിലെ കെട്ടിടവും അദ്ദേഹം നാടിന് സമർപ്പിക്കും യു ഡി എഫ് കല്പറ്റ നിയോ ജക മണ്ഡലം കൺവൻഷനിലും രാഹുൽഗാന്ധി പങ്കെടുക്കും പ്രളയബാധിതർക്ക് നഷ്ടപരിഹാരം നൽകുന്ന തോടൊപ്പം പുനരധിവാസവും വേഗത്തിലാക്കണമെന്ന് രാഹുൽ ഗാന്ധി നിലമ്പൂരിൽ ആവശ്യപ്പെട്ടു രാത്രികാല യാത്രാനിരോധനം നീക്കുന്നതിനും നിലമ്പൂർ നഞ്ചൻഗോഡ് പാത യഥാർഥ്യമാക്കാനും ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് പാർലമെന്റിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

ഡി

യുവതിയുടെ ചികിത്സാചെലവ് ഉത്തർപ്രദേശ് ഗവൺമെന്റ് ഏറ്റെടുത്തു

ഹൈദരബാദിൽ വൈകിട്ട് ഏഴിനാണ് മത്സരം മൂന്ന് മത്സര ങ്ങളുടെ പരമ്പരയിൽ രണ്ടാമത്തേത് തിരുവനന്തപുരത്താണ് മൂന്നാം മത്സരം മുംബൈയിൽ നടക്കും

കേരളത്തിന്റെ ്കെ

ഇന്ദ്രജ അഞ്ജു സാബു അൻസുമോൾ ബെന്നി പി

അനശ്വര എന്നിവർ ഇവരിൽ ഉൾപ്പെടുന്നു ഇന്നലെ ഉത്തർപ്രദേശിന്റെ ഹിമാനി റാണയെ തോൽപിച്ചാണ് അനശ്വര കാർട്ടറിലെത്തിയത് നാളെ സെമിഫൈനലും മറ്റന്നാൾ ഫൈനലും നടക്കും

ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് സി മത്സരം ഇരുടീമുകളും ഓരോ ഗോളടിച്ച് സമനി ലയിൽ പിരിഞ്ഞു ഇതോടെ കേരളം ഏഴു കളിയിൽ നിന്ന് ആറു പോയിന്റു മായി എട്ടാം സ്ഥാനത്താണ്

ഐ ലീഗ് ഫുട്ബാളിൽ ഗോകുലം കേരള എഫ് സി ഇന്ന് സീസണിലെ ആദ്യ എവേ മത്സരത്തിൽ പങ്കെടുക്കും വൈകീട്ട് ഗോവയിലെ തിലക് മൈതാനിയിൽ ഇന്ത്യൻ ആരോസിനെയാണ് ഗോകുലം നേരിടുന്നത്

കോഴിക്കോട് ബീച്ചിൽ ആരംഭിച്ച ബീച്ച് ഗെയിംസിലെ കബഡി മത്സരങ്ങൾ രാവിലെ നടക്കും വൈകീട്ട് ബീച്ച് ഗെയിംസ് സമാപന സമ്മേളനം മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും

കർശനമാക്കി

അയോധ്യ തർക്കഭൂമി കേസിൽ വിധി വന്ന വർഷമായതി നാൽ കൂടുതൽ ജാഗ്രത പുലർത്താൻ പൊലീസിന് നിർദ്ദേശം നൽകിയിട്ടു ണ്ട് ഭക്തർ വലിയ നടപ്പന്തലിൽ മൊബൈൽ ഫോൺ സിച്ച് ഓഫ് ആക്കണ മെന്ന നിർദ്ദേശം കർശനമായി നടപ്പാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്

ഹെലികോപ്റ്റർ ഉപയോഗിച്ച് സന്നിധാനവും പരിസരവും നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബോംബു സ്കാഡും ഫയർ ഫോഴ്സും പ്രത്യേകം പരിശോധന നടത്തും ശബരിമല സന്നിധാനത്തെയും പമ്പയിലെയും ഭക്ഷ്യസാധന വില വർദ്ധിപ്പിക്കണ മെന്ന ആവശ്യം അനു വദിക്കാ നാ വി ല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി മണ്ഡല മകർവിളക്ക് സീസൺ ആരംഭിച്ചതി നാൽ ഇക്കാര്യത്തിൽ ഇനി ഇടപെടാനാവില്ലെന്ന് കോടതി അറിയിച്ചു എന്നാൽ ഈയാവശ്യം ഉന്നയിച്ച് ജില്ലാ കലക്ടർക്ക് നിവേദനം നൽകാൻ ഹരജിക്കാർക്ക് അവകാശമുണ്ടെന്നും കോടതി ഉത്തരവിൽ പറയുന്നു

പ്പെടുത്തിയെന്ന പരാതിയിൽ സംവിധായകൻ ശ്രീകുമാർ മേനോനെ തൃശൂ രിൽ അറസ്റ്റ് ചെയ്തു

ഭീഷണിപ്പെടുത്തുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്തുവെന്ന് കാണിച്ച് മഞ്ജുവാര്യർ സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയെ നേരിൽ കണ്ട് പരാതി നൽകിരുന്നു

മഞ്ചേരി എഫ് എം സ്റ്റേഷനിലെ ഭൂതല പ്രക്ഷേപണം ഇന്നലെ വൈകിട്ട് പുനരാരംഭിച്ചു

ഇന്ന് വൈകിട്ടോടെ പൂർവ്വസ്ഥിതിയിൽ പ്രക്ഷേപണം പുനരാ രംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്

യിലെ ന്യൂനപക്ഷങ്ങളെ ഏറെ ആശങ്കപ്പെടുത്തിയതായി സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ

വിശ്വ ശാന്തിക്ക് മതവിദ്യ എന്ന സന്ദേശവുമായി ഡോക്ടർ ബഹാവുദ്ദീൻ മുഹ മ്മദ് നദ്വി നയിക്കുന്ന ദക്ഷിണമേഖലാ ജാഥയുടെ സമാപന സമ്മേളനം തിരൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആലിക്കുട്ടി മുസ്ച്യാർ

ഫണ്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മേൽപ്പാലം നിർമിക്കുമെന്ന് കേന്ദ്ര മന്ത്രി നിതിൻ ഗഡ്കരി എം കെ രാഘവൻ എം പിക്ക് ഉറപ്പ് നൽകി

കോഴിക്കോട് പെരുന്തുരുത്തി ഭാരതീയ വിദ്യാഭവൻ സ്കൂളിൽ സമാപിച്ച പത്താമത് അഖില കേരള ഇന്റർ ഭവൻസ് ഗെയിംസിൽ പെരുന്തുരുത്തി ഭാരതീയ വിദ്യാഭവൻ ജേതാക്കളായി

എറണാകുളം ജില്ലയിൽ വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ഓപ്പറേഷൻ പ്യുവർ വാട്ടർ കർമ്മ പദ്ധതി രൂപീകരിക്കാൻ നിയമസഭാ സമിതി നിർദ്ദേശിച്ചു

ഗണേഷ്കുമാർ അധ്യക്ഷനായ സമിതി പൊതുപ്രവർത്തകരിൽ നിന്നും പരിസ്ഥിതി പ്രവർത്ത കരിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും തെളിവെടുത്തശേഷമാണ് ഈ നിർദ്ദേശം നൽകിയത്

കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയുടെ ഈ വർഷത്തെ ബാലാമണിയമ്മ പുരസ്കാരം എഴുത്തുകാരൻ ടി പത്മനാഭന് സമ്മാനിച്ചു